ചൈനാ രേഖയിൽ സൈന്യം ഉത്തരവാദിത്ത്തോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇന്ത്യ

പഠനരീതി ക്രമീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഒരു സ്കൂളിലും ഫീസ് വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശം

വീരേന്ദ്രകുമാർ കോഴിക്കോട്ട് അന്തരിച്ചു

അതിർത്തി പരിപാലനത്തിൽ ഇന്ത്യൻ സേന തികഞ്ഞ ഉത്തരവാദിത്ത്തോടെയുള്ള സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്

രാജ്യത്തിന്റെ പരമാധികാരവും ദേശസുരക്ഷയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യക്ക് ഉറച്ച നിലപാടാണുള്ളത്

തെലങ്കാന സ്വദേശി ആണ് മരണമടഞ്ഞത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ഇയിൽ നിന്നാണ് കൂടുതൽപ്പിമാനങ്ങൾ എത്തുന്നത് ദുബായിൽ നിന്ന് ജയ്പൂർ കൊച്ചി കണ്ണൂർ ഹൈദരാബാദ് കോഴിക്കോട് തിരുവനന്തപരും എന്നിവിടങ്ങളിലേക്കും അബുദാബിയിൽ നിന്ന് ശ്രീനഗറിലേക്കും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഓരോ വിമാനങ്ങളുണ്ടാകും

കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിസ്ഥാനവും പിന്നീട് തൊഴിൽവകുപ്പിന്റെ സ്വതന്ത്രചുമതലയുള്ള സഹമന്ത്രിയുമായിരുന്നു

കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം രണ്ട് തവണ രാജ്യസഭാഅംഗമായും പ്രവർത്തിച്ചു

ഒരു സ്കൂളിലും ഫീസ് വർധിപ്പിക്കാൻ പാടില്ല പുതിയ സാഹചര്യത്തിനമ്മൂസൃതമായി പഠനരീതി ക്രമീകരിക്കുക വേണ്ട മാറ്റങ്ങൾ പ്പർട്ടുത്തുക എന്നിവയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രി്അട്ടിയ്ന്തര പ്രാധാനൃത്തോടെ നടക്കേണ്ട കാര്യം

ഭർഭാഗബാധയിൽ അമേരിക്കയാണ് മുന്നിൽ

രോഗബാധയിൽ ബ്രസീലാണ് രണ്ടാമത്

തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് മറ്റ് കമ്പനികളുമായി സഹകരിച്ച് നിർമ്മിക്കുന്നത് മുൻനിര കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ മൂന്ന് രീതികളിലാണ് വാക് സിൻ വികസനശ്രമം നടക്കുന്നത്